പാക് അധീന കശ്മീരിലെ ബാലാകോട്ടിൽ ജയ്ഷെ മുഹമ്മദ് ഭീകരക്യാമ്പുകൾ വ്യോമാക്രണത്തിൽ ഇന്ത്യ തകർത്തു ഒട്ടേറെ ഭീകര നേതാക്കളെ ഇല്ലാതാക്കിയതായി വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ സൈനിക നീക്ക മല്ല പ്രതിരോധ നീക്കമാണെന്നും വിശദീകരണം

ചെന്നൈ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ഷൊർണൂ രിൽ പാളം തെറ്റിയതിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുന സ്ഥാപിച്ചു

ൾ ൽ ൾ പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യ പാക്കിസ്ഥാന് കനത്ത തിരിച്ചടി നൽകി

ആക്രമണത്തിൽ ജയ്ഷെ മുഹമ്മദ് ഭീകരസംഘടന നടത്തുന്ന മൂന്ന് ക്യാമ്പുകൾ തകർത്തു

ബാലാക്കോട്ട് ചകോതി മുസഫറബാദ് എന്നിവിടങ്ങളിലെ ഭീകര ക്യാമ്പുകളാണ് പൂർണ്ണമായും തകർത്തത് ആക്രമണം നടന്നയുടൻ രാജ്യരക്ഷാമന്ത്രി നിർമ്മലാ സീതാ രാമൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശദാംശങ്ങൾ ധരിപ്പിച്ചു വ്യോമക്രമണം നടത്തിയതായി വിദേശകാര്യമന്ത്രാലയം സ്ഥിരീകരിച്ചു ബാലാകോട്ടിലെ ഭീകരക്യാമ്പുകൾ ഇന്ത്യ തകർത്തുവെന്നും ജയ്ഷെ മുഹമ്മദിന്റെ മുതിർന്ന കമാൻഡർ ഉൾപ്പെടെ ഒട്ടേറെ ഭീകര നേതാക്കളെ ഇല്ലാതാക്കിയെന്നും വിദേ ശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൌലാന മസൂദ് അസറിന്റെ അടുത്ത ബന്ധുവും ജയ്ഷെ മുഹമ്മദ് തലവനുമായ മൌലാന യൂസഫ് അസർ ഇവരിൽ ഉൾപ്പെടുന്നതായി അദ്ദേഹം പറഞ്ഞു പരിശീ ലനം കിട്ടിയ ഭീകരർക്കൊപ്പം പരിശീലകരും ആക്രമണത്തിൽ മരിച്ചതായി വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു

നാട്ടുകാർക്ക് നാശം വരുത്തിയിട്ടില്ലെന്നും ഗോഖലെ വൃക്തമാ ക്കി ഇതൊരു സൈനിക നീക്കമല്ലെന്നും പ്രതിരോധ നീക്കമാ ണെന്നും അദ്ദേഹം അറിയിച്ചു ഭീകരതയോട് പോരാടുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഇന്ത്യ പ്രതിബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു

അവരുടെ പരിശീലന ക്യാമ്പുകളും ധാരാളമു ണ്ട് ഇക്കാര്യം പാകിസ്ഥാനെ അറിയിച്ചെങ്കിലും അവർ നിഷേധി ക്കുകയായിരുന്നുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി ഇന്ത്യയിൽ കൂടുതൽ ആക്രമണംനടത്താനും ചാവേർ ആക്രമ ണങ്ങൾക്കും ജയ്ഷെ മുഹമ്മദ് ലക്ഷ്യമിട്ടിരുന്നുവെന്നും വിജയ് ഗോഖലെ വെളിപ്പെടുത്തി പാകിസ്ഥാൻ ഭാഗത്ത് കനത്ത നാശനഷ്ടം ഉണ്ടായതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു

പശ്ചിമമേഖലയിലെ എല്ലാ ഇന്ത്യൻ വ്യോമസേനാ ക്യാമ്പുകളിലും പൂർണ ജാഗ്രത ഏർപ്പെടുത്തിയിരുന്നു ൃ വ്യോമാക്രമണത്തെ തുടർന്ന് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുര ക്ഷാകാര്യസമിതി നിർണായകയോഗം ചേർന്നു കേന്ദ്ര മന്ത്രിമാ രായ അരുൺ ജെയ്റ്റ്ലി സുഷമാ സ്വരാജ് രാജ്നാഥ് സിംഗ് നിർമല സീതാരാമൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രധാനമ ന്ത്രിയുടെ ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു

ഇന്ത്യൻ സൈന്യം അവസരത്തിനൊത്ത് ഉയർന്നു വെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു രാജ്യം മുഴുവൻ സൈന്യത്തിനൊപ്പ മുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയ വ്യോമസേന പൈല റ്റുമാരെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി അഭിനന്ദിച്ചു രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷക്കായി ഉറച്ചു നടപടി സ്വീകരി ക്കുന്ന വ്യോമസേനാ പൈലറ്റുമാരെ അഭിവാദ്യം ചെയ്യുന്നതായി രാഹുൽ ട്വിറ്ററിൽ കുറിച്ചു ് ജമ്മുകശ്മീരിൽ വിഘടനവാദി നേതാക്കളുടെ വീട്ടിൽ എൻഐ റെയ്ഡ് നടത്തി ജെ കെ ്എൽ എഫ് ചെയർമാൻ മുഹമ്മദ് യാസിൻ മാലിക് മിർവായീസ് ഉമർഫാറൂഖ് തുടങ്ങിയ വരുടെ വീടുകളിലായിരുന്നു റെയ്ഡ്

കേസിലെ രേഖകളുടെ പരിഭാഷ പരിശോ ധിക്കുന്നതിന് ആറാഴ്ചത്തേക്കാണ് മാറ്റിയത് ചീഫ് ജസ്റ്റിസ് രജ്ഞൻ ഗൊഗോയ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടന ബെഞ്ചാണ് വാദം കേൾക്കുന്നത് ജസ്റ്റിസുമാരായ എ എസ് ബോബ്ഡെ ഡി വൈ ചന്ദ്രചൂഡ് അശോക് ഭൂഷൺ എസ് അബ്ദുൽ നസീർ എന്നിവരാണ് ഭരണഘടനാ ബെഞ്ചിലെ മറ്റ് ജഡ്ജിമാർ

കേസിലെ രേഖകൾ സംബന്ധിച്ച് സെക്രട്ടറി ജനറൽ സമർപ്പിച്ച റിപ്പോർട്ട് പരാമർശിച്ച ചീഫ് ജസ്റ്റിസ് റിപ്പോർട്ട് പിന്തു ടരാൻ ഇരുഭാഗത്തെയും അഭിഭാഷകരോട് ആവശ്യപ്പെട്ടു രേഖ കളുടെ പരിഭാഷ എല്ലാവർക്കും സ്വീകാര്യമാണെങ്കിൽ വിചാരണ തുടങ്ങിയ ശേഷം ഇതേ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കാനാവി ല്ലെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു പരിഭാഷ പരിശോധിക്കുന്നതിന് കൂടുതൽ സമയം വേണമെന്ന് അഭിഭാഷകർ ആവശ്യം ഉന്നയി ച്ചും ഹർത്താൽ നിയന്ത്രണം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണ റായി വിജയൻ സർവകക്ഷി യോഗം വിളിച്ചു

കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഹർത്താൽ നിയന്ത്രിക്കാൻ നിയമനിർമാണം വേണമെന്ന ആവശ്യം ഉയർന്നു വന്നപ്പോൾ സർവകക്ഷി യോഗം വിളിച്ച് പ്രശ്നം ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും സുവർണ ജൂബിലി സമുച്ചയങ്ങളുടെ സമർപ്പണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു പുനരുദ്ധാരണത്തിന് തിരഞ്ഞെടുത്ത സ്ഥകാര്യ കശുവണ്ടി വൃവസായങ്ങളുടെ പുനർവായ്പാ വിതരണത്തിന്റെ ആദ്യഘട്ടവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു

എം എ

ജില്ലാതലത്തിൽ പൂർത്തിയായ വീടുകളുടെ താക്കോൽദാനം തത്സമയ സംപ്രേക്ഷണത്തിലൂടെ മറ്റ് ജില്ലക ളിലും നടത്തും

രാവിലെ ആറുമണിയോടെ ട്രെയിനിന്റെ ബ്രെയ്ക്ക് വാനും പാർസൽ കോച്ചുമാണ് പാളത്തിൽ നിന്ന് തെന്നിമാറിയത് ആർക്കും പരിക്കില്ല അപകടത്തെ തുടർന്ന് ട്രെയിൻ സർവീസുകളിൽ ക്രമീകരണം ഏർപ്പെടുത്തി നിലമ്പൂർ ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ റദ്ദാക്കി പാലക്കാട് ജംഗ്ഷൻ നിലമ്പൂർ പാസഞ്ചർ ഒറ്റപ്പാലത്ത് യാത്ര അവസാനിപ്പിക്കും ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ഹൈദരബാദ് തിരുവന ന്തപുരം ശബരി എക്സ്പ്രസ് ഗൊരഖ്പൂർ തിരുവനന്തപുരം രപ്തി സാഗർ എക്സ്പ്രസ് ട്രെയിനുകൾ ഷൊർണൂരിൽ വരാതെ ലിങ്ക് ലൈൻ വഴി തിരിച്ചുവിടുമെന്നും റെയിൽവെ അറിയിച്ചു പെരിയ ഇരട്ട കൊലപാതകത്തെ തുടർന്ന് നില നിൽക്കുന്ന സംഘർഷാവസ്ഥക്ക് പരിഹാരം കാണാൻ കാസർകോട്ട് ഉച്ച കഴിഞ്ഞ് സർവകക്ഷി സമാധാന യോഗം ചേരും കലക്ട്രേറ്റിൽ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടേയും പ്രതിനിധികൾ പങ്കെടുക്കും

കാസർകോട് കലക്ട്രേറ്റ് പരിസ രത്ത് സമരം മുതിർന്ന പാർട്ടി നേതാവ് വി എം സ്രുധീരൻ ഉദ്ഘാ ടനം ചെയ്തു ഡി സി സി പ്രസിഡണ്ട് ഹക്കിം കുന്നേലിന്റെ നേതൃത്വത്തിലാണ് നിരാഹാരസമരം

ഓഖി ദുരന്തബാധിതരുടെ ആശ്രിതർ അടക്കമുള്ളവർക്കാണ് തീരദേശ സേനയിൽ നിയമനം നൽകുന്നതെന്ന് അദ്ദേഹം ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു കടലിലെ രക്ഷാപ്രവർത്തനത്തിനടക്കം ഇവരെ നിയോഗിക്കു മെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തൃശൂർ പൊലീസ് അക്കാദമിയിൽ നാലു മാസത്തെ പരിശീലനത്തിന് ശേഷമായിരിക്കും ഇവർ സേന യിൽ പ്രവർത്തനം തുടങ്ങുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാര ത്തിലേക്ക് ഉയർത്തും ഇതിന്റെ ഭാഗമായി നിർമാണം പൂർത്തി യാക്കിയ കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി എ കെ ജി സ്മാരക ഗവ ഹയർസെക്കണ്ടറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവ ഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ കണ്ണൂരിൽ അറിയിച്ചു

വിദേശ മലയാളികളിൽ നിന്ന് കേരളത്തിലേക്ക് നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് നോർക്കാ റൂട്ട്സിന്റെ ബിസിനസ് ഫെസി ലിറ്റേഷൻ സെന്റർ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാ ടനം ചെയ്യും വൈകീട്ട് തിരുവനന്തപുരം നോർക്കാ റൂട്സ് ആസ്ഥ ാനത്താണ് ഉദ്ഘാടന ചടങ്ങ്

മറ്റന്നാൾ ഉച്ചക്ക് മന്ത്രി കെ

ശൈ ലജ ലാബിന് തറക്കല്പിടും പ്താച്ചിമട സമരസമിതി ഇന്ന് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രൈബ്യൂണൽ സ്ഥാപി ക്കുമെന്ന ഗവ വാഗ്ദാനം പാലിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച്